സജ്ജത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി

പ്രഖ്യാപിക്കും

ന് ഹരിയാനയിലെ ഭാനുവിൽ തുടക്കമായി

സ്വയരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ചെറുതെങ്കിലും വളരെ പ്രധാനപ്പെട്ട മുൻകരുതൽ സ്വീ്കരിക്കാൻ കൂട്ടായി പ്രവർത്തിക്കണമെന്നും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു

ഇതിൽ രോഗബാധ സംശയിക്കുന്നവരെ ്യനിരന്തരമായി നിരീക്ഷിച്ചു വരികയാണ്

തിങ്കളാഴ്ച മുതൽ ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങളെക്കുറിച്ച് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തു വിമാനത്താവളങ്ങളിലെ സ്ക്രീനിങ് സംവിധാനങ്ങൾ കർശനമാക്കാൻ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി വിവിധ മന്ത്രാലയങ്ങളുമായി ഏകോപനയോഗങ്ങൾ ചേരാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ജില്ലാ കളക്ടർമാരെ കൂടി ഉൾപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി

വി ചാനലുകൾക്കും എഫ്

കൊറോണ വൈറസിനെതിരെയുള്ള പ്രചാരണ അടയാളം ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്

ഇദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും കൊറോണ വൈറസ് ബാധ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിച്ചു ഇരുവരും ഐസൊലേഷൻ വാർഡുകളിൽ കഴിയുന്നതായി ആരോഗ്യമന്ത്രി രഘുശർമ്മ അറിയിച്ചു

കൻസാൽ കൂട്ടിച്ചേർത്തു

ഏറ്റവും ഫലപ്രദമായും സമയോചിതമായും രാജ്യങ്ങളെ സഹായിക്കുകയാണ് ലക്ഷ്യമെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപ്പാസ് വ്യക്തമാക്കി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമായുള്ള വിഹിതം മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനോ ആരോഗ്യ സേവനങ്ങൾക്കായോ ഉപയോഗിക്കാം

ലോകബാങ്ക് അംഗത്വമുള്ള പല രാജ്യങ്ങളും ഈ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ആദ്യം സഹായം ലഭിക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെ രാജ്യങ്ങൾക്കാണെന്ന് ഡേവിഡ് മാൽപ്പാസ് വ്യക്തമാക്കിയില്ല

മറ്റു രാജ്യങ്ങളിൽ രോഗം പ്പട്രുന്ന് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് രണ്ടാം ഘട്ട നിരീക്ഷണ പ്പിദ്ധുതികൾ ആസൂത്രണം ചെയ്തതായും ആരോഗ്യമന്ത്രി അറിയിച്ചു

ആശുപത്രികളിലെ ഐസൊലേഷൻ വാർഡുകൾ നിലനിർത്തുമെന്നും അവലോകന യോഗത്തിനു ശേഷം മന്ത്രി അറിയിച്ചു

രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അക്കാദമി അധ്യക്ഷനുമായ ഉത്തം പച്ചാർണെ സംബന്ധിക്കും

വ്യാവസായ മേഖലകൾ വികസിപ്പിക്കാനും അതിന്റെ വളർച്ചയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സർക്കാർ ഒരുക്കുമെന്നും കശ്മീരിനെ നിക്ഷേപക ലക്ഷ്യസ്ഥാനമായി ഉയർത്താൻ നിരവധി പദ്ധതികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ ശ്രീനഗറിൽ നടന്ന ജമ്മു കശ്മീർ ഇക്കണോമിക്ക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ലഫ്റ്റനന്റ് ഗവർണർ

ജസ്റ്റിസുമാരായ രോഹിന്റൺ ഫാലി നരിമാൻ എസ് രവീന്ദ്ര ഭട്ട് വി

ക്രിപ്റ്റോ കറൻസി വിലക്കിയ റിസർവ്വ് ബാങ്ക് നടപടിയെ ചോദ്യം ചെയ്ത് ഇന്റർനെറ്റ് ആന്റ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും മറ്റ് ചിലരുമാണ് പരമോന്നത കോടതിയെ സമീപിച്ചത്

ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തുഷ്ടി പ്രകടിപ്പിച്ചു

തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർത്ത ഇവർ പശ്ത്തൂൺ സംസ്കാര സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്ര സഭ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു പശ്ത്തൂൺ താഹാഫൂസ് പ്രസ്ഥാന നേതാവ് മൂൻസൂർ പശ്ത്തിനെ പാകിസ്ഥാൻ സൈന്യം അടുത്തകാലത്ത് ആസ്റ്റ്യൂ ചെയ്യുകയും ലോകമെമ്പാടുമുള്ള പശ്ത്തൂൺ പ്രവർത്ത്കരുടെ പ്രതിഷേധത്തെ തുടർന്ന് വിട്ടയയ്ക്കുകയും ചെയ്തിരുന്നു

പി യിലെ ബെയ്സിക് ട്രെയിനിംഗ് സെന്ററിൽ കേന്ദ്ര സഹമന്ത്രി കിരൺ റിജിജു കായികമേള ഉദ്ഘാടം ചെയ്തു